അഞ്ചാം ഘട്ട ചർച്ച ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്നു

സ്ഥിരീകരിച്ചു

നാളെ സിഡ്നിയിൽ

കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിങ്ങ് തോമറും റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലുമാണ് ഇന്നത്തെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് കേന്ദ്രം അംഗീകരിച്ച കാര്യങ്ങൾ രേഖാമൂലം നൽകണമെന്ന് കർഷകർ യോഗത്തിൽ നിലപാട് സ്വീകരിച്ചു

രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും മുതിർന്ന കാബിനറ്റ് മന്ത്രിമാരും തമ്മിലുള്ള ഉന്നതതല കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കർഷകരും കേന്ദ്രവും തമ്മിലുള്ള അഞ്ച്രിം ഘട്ട ചർച്ച ആരംഭിച്ചത് ആഭ്യന്തരമന്ത്രി അമിത് ഷ്ടാ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൃഷിമന്ത്രി ന്ടരേന്ദ്ര ്സിംഗ് തോമർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു

സൌഹാർദ്ദപരമായ അന്തരീക്ഷത്തിലായിരുന്നു ചർച്ചകൾ കർഷകരുടെ ക്ഷേമത്തിനായുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത കൃഷി മന്ത്രി ആവർത്തിച്ചു മിനിമം താങ്ങുവില ഇല്ലാതാകുമെന്ന് കർഷകർ ഭയപ്പെടേണ്ടതില്ലെന്നും അദ്ദേഹം ഉറപ്പ് നൽകി സമവായമാകാത്ത സാഹചര്യത്തിൽ ചർച്ച ഈ മാസം ഒൻപതിന് വീണ്ടും തുടരും

പാൻ ഐ ഐ ടി

എസ്എ സംഘടിപ്പിച്ച ആഗോള ഉച്ചകോടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഇന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാളെയെ രൂപപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വീണ്ടും പഠിക്കുക വീണ്ടും ചിന്തിക്കുക വീണ്ടും നവീകരിക്കുക എന്നതായിരിക്കും കോവിഡാനന്തര ലോക ക്രമത്തിന്റെ കാതൽ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മിക്കവാറും എല്ലാ മേഖലകളിലും ആരംഭിച്ചിരിക്കുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പരമ്പരയാണ് ലോകത്തെ വീണ്ടും ഊർജ്ജസ്വലമാക്കുന്നത് ഇത് ഈസ് ഓഫ് ലിവിംഗ് ഉറപ്പാക്കുമെന്നും ദരിദ്രർക്കും പാർശ്വവത്കരിക്കപ്പെട്ടവർക്കും ഗുണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു

വില കുറഞ്ഞതും ഫലപ്രദവുമായ കോവിഡ് വാക്സിനു വേണ്ടി ലോകം ഇന്ത്യയെ ഉറ്റു നോക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ലോകാരോഗൃ സംഘടനയുടെ പിന്തുണയോടെ വാക്സിനുകളുടെ തുല്യമായ വിതരണം ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ശ്രീമതി സൌമ്യ സ്വാമിനാഥൻ ജനീവയിൽ അറിയിച്ചു

ആറാമത് ഇന്ത്യാ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന് നാന്ദി കുറിച്ചുകൊണ്ട് സംസാരിച്ച അദ്ദേഹം ലോകത്തിലെ ഏറ്റവും മികച്ചവയുമായി മത്സരിക്കാൻ കഴിയുന്ന ഉത്പന്നങ്ങളും സേവനങ്ങളും സൃഷ്ടിക്കാൻ ശാസ്ത്രജ്ഞരോട് ആവശ്യപ്പെട്ടു

തമിഴ്നാടിന്റെ തെക്കൻ തീരത്ത് പെയ്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായി

കൂടുതൽ വിവരങ്ങളുമായി വിജേഷ്

അതിശക്തമായ മഴയാണ് തമിഴ്നാടിന്റെ വിവിധ ജില്ലകളിൽ രേഖപ്പെടുത്തിയത് കടലൂരിലാണ് കൂടുതൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തത് ജില്ലയിൽ അൻപതിനായിരം പേരെ ദുരിതാശാസ ക്യാംപുകളിലേയ്ക്ക് മാറ്റി കേരള തീരത്ത് മത്സ്യബന്ധത്തിനായി കടലിൽ പേറ്കുന്നതിനുള്ള നിരോധനം തുടരും കേന്ദ്ര കാലാവസ്ഥ വക്ടുപ്പിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാലാണ് ഇത് കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായതോ അതിശക്തമായിതോ ആയ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ക്യൂന്ദ് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇന്ന് കൊല്ലം പത്തന്റെതിട്ട് ഇടുക്കി ജില്ലകളിലും നാളെ പത്തനംതിട്ട എറണാകുളം ഇടുക്കി മലപ്പുറം ജില്ലകളിലും ഓറഞ്ച് അലെർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി അശുതോഷ് അഗ്നിഹോത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ കൃഷി ദേശീയപാത ധനകാര്യ വൈദ്യുതി ഗ്രാമവികസനം മത്സ്യബന്ധനം ജലവിഭവം എന്നീ വകുപ്പുകളുടെ പ്രതിനിധികളും ഉൾപ്പെട്ടിട്ടുണ്ട്

പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ആഗ്ര മെട്രോയുടെ രണ്ട് ഇടനാഴികൾ പൂർത്ത്രീക്രിക്കുന്നതിന് ഉത്തർപ്രദേശ് മെട്രോ റെയിൽ ക്ടോർപ്പറേഷൻ അഞ്ച് വർഷത്തെ സമയപരിധിയാണ് ്ട്രിശ്ച്യിച്ചിരിക്കുന്നത് താജ്മഹൽ കാണാനെത്തുന്ന ലോകമെന്പ്റടുമുള്ള വിനോദ സഞ്ചാരികൾക്ക് ഹരിത ഗതാഗതത്തിന്റെപ്രുതീയ് അനുഭവം ആഗ്ര മെട്രോയിലൂടെ ല്ലിക്കും